അമേരിക്ക

സമഭാവനയുടെ സന്ദേശമുയർത്തി ഇന്ന് തിരുവോണം

ഖത്തറിനെതിരെ ഇന്തൃയ്ക്കു സമനില

ജമ്മുകശ്മീരിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ആഭ്യന്തരകാര്യം മാത്രമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി

അടുത്തിടെയു ായ നിയമനിർമ്മാണങ്ങൾ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുക്കൊ ുളളതാണെന്ന് ശ്രീമതി താക്കൂർ പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനമാണ് ഇന്തൃ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഭീകരരിൽ നിന്നൂം കശ്മീരിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവശ്യമായ മുൻകരൂതലുകൾ സംസ്ഥാന ഭരണകൂടം എടുത്തിട്ടു വെല്ലുവിളിനീറഞ്ഞ് ആവശ്യസേവനങ്ങളും അവശ്യ സാധ്നങ്ങളും യാത്രാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടു ്

ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്ന രാജൃങ്ങൾ മനുഷ്യാവകാശ വിരുദ്ധരാണ് ഇവർക്ക്എതിരെ കൈകോർത്ത് പോരാടണമെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു

ഉദ്ഘാടന ചടങ്ങിനിടെ കന്നുകാലികളിൽ നടപ്പിലാക്കുന്ന ദേശീയ കൃത്രിമ ബീജസങ്കലന പദ്ധതിക്കും പ്രധാനമന്ത്രി ആരംഭം കുറിക്കും മഥുരയിലെ പശു പിഗ്യാൻ ഏവം ആരോഗ്യമേള സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബീജദാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവ്വഹിക്കും

ജയ്ശങ്കുർ സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ഹെംഗ് സ്വീ കീറ്റുമായി ഇന്നലെ ന്യൂഡിൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഭാവി സാധ്യതകൾ പ്രയോജനപ്പെടൂത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇരു നേതാക്കളും ചർച്ചർ ചെയ്തു ഇന്ത്യ സിംഗപ്പൂർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കൂട്ടിക്കാഴ്ച സഹായകമായെന്ന് വിദേശകാര്യ മന്ത്രി ട്വീറ്റ് ചെയ്തു

കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അന്തർദേശീയ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു

വ്യോമസേനാ മേധാവി എയർ ചീഫ്മാർഷൽ ബി എസ് ധനോവയുടെ അധ്യക്ഷതയിലായിരുന്നു ഗോൾഡൻ ആരോസ്സ് രാഷ്ട്രത്തിനു സമർപ്പിച്ചത്

ഷിംലയിലെ രാജ്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ധരംചന്ദ് ചൌധരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

അതിനിടെ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയസുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനെ തൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ താവളമായ ക്യാമ്പ് ഡേവിഡിൽ താലിബാൻ നേതാക്കളുമായി അമേരിക്ക നടത്താനിരുന്ന കൂടിക്കാഴ്ചയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ നടപടിയിലേക്ക് എത്തിച്ചത്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാജൃത്തെ പോഷകാഹാരക്കുറവിൽ നിന്ന് കരകയ്ട്രാനുതകുന്ന പദ്ധതിയാണ് പോഷൺ മാ എന്ന് പറഞ്ഞ ശ്രീ ഫറൂഖ് ഖ്യാൻ രാജ്യം സുരക്ഷിതമായ ഭക്ഷണമെന്നതിൽ നിന്ന് പോഷണ സുരക്ഷ എന്ന ചിന്തയിൽ വഴിമാറണമെന്ന് ഓർമ്മപ്പെടുത്തി ജമ്മുവിൽ പോഷൺ അഭിയാന്റെ കീഴിൽ നടന്ന പോഷണ്ണി മ്യാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു കാർഷിക സമൃദ്ധിയുടെ പ്രാധാനൃം വിളിച്ചോതുന്ന ഓണം ജനങ്ങളെ എന്നും പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ഗവൺമെന്റിന്റെ ഓണാഘോഷ സംസ്ഥാന പരിപാടികൾക്ക് ഇന്നലെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി

നാടിനെ പുനർ നിർമിക്കുന്നതിനും നവകേരളം സൃഷ്ടിക്കുന്നതിനും ഈ ഓണം പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം മലയാളികൾക്ക് നൽകിയ ഓണസന്ദേശത്തിൽ പറഞ്ഞു

റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

രാജ്യത്തെ തെക്നാഫ് ഉഖീയ മേഖലകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്

ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രിപ്പിധ് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തു വന്നിട്ടു ്

ശ്രീലങ്കയ്ക്ക് മേൽ വിഷയത്തിൽ ഇന്ത്യൂ സ്മ്മർദ്ദം ചെലുത്തുന്നതായി പാക് കായിക മന്ത്രി ഫവാദ് ഹൂള്ള്സ്ൻ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് ഹരിൻ ഫെർണാ് നടക്കാനിരുന്ന മത്സരത്തിൽ നിന്ന് താരങ്ങൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിൽ മറ്റ് അസ്ാഭാവികത ഇല്ലെന്ന് പറഞ്ഞ അദ്ദേഹം കളിക്കാരുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നതായും അറിയിച്ചു

അധികം വൈകാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഹാരം ക െ ത്താൻ സാധിക്കുമെന്ന് മന്ത്രിയും പാർട്ടിയുടെ ഉപനേതാവുമായ സജിത് പ്രേമദാസ മാധ്യങ്ങളോട് പറഞ്ഞു വിഷയത്തിൽ പ്രധാനമന്ത്രി റനിൽ വിക്രമ സിംഗയുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം അറിയിച്ചു

പോ ിച്ചേരി ഭാരതി പാർക്കിലെ സൂബ്രഹ്മണ്യ ഭാരതിയുടെ പ്രതിമയിൽമുഖ്യമന്ത്രി നാരായണസാമി പുഷ്പാർച്ചന നടത്തി സാമാജികൻ ലക്ഷിനാരായണൻ ഉൾപ്പെടെഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു